സംസ്ഥാനത്ത് ചൊവ്വാഴ്ച്ച മുതൽ ശക്തമായ മഴക്ക് സാധ്യത

മരിച്ചത് കണ്ണൂർ ഇരിട്ടി സ്വദേശികൾ

ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൽ രാജസ്ഥാൻ റോയൽസിന് മൂന്ന് വിക്കറ്റ് ജയം

ചുഴലിക്കാറ്റ് തമിഴ്നാട് തീരത്ത് നാശം വിതക്കാൻ സാധ്യതയു ണ്ട് ചൊവ്വാഴ്ച്ചയോടെ തമിഴ്നാട് തീരത്തെത്തുന്ന ശക്തമായ ന്യൂന മർദം കാരണം കേരളത്തിലും കർണാടക തീരത്തും ശക്തമായ മഴ ഉണ്ടായേക്കും ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ കേരളത്തിൽ പലയി ടത്തും ശക്തമായ മഴയുണ്ടാകുമെന്നാണ് സൂചന എറണാകുളം ഇടുക്കി തൃശൂർ മലപ്പുറം ജില്ലകളിൽ തിങ്കളാഴ്ച്ച യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്

മത്സ്യത്തൊ ഴിലാളികൾ ഇന്നുമുതൽ ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ ഭൂമധ്യരേഖാ പ്രദേശത്തും അതിനോട് ചേർന്ന തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്ക ടലിലും തമിഴ്നാട് തീരത്തും മത്സ്യബന്ധനത്തിന് പോകരുതെന്ന് നിർദേശിച്ചിട്ടുണ്ട് ഇപ്പോൾ ആഴക്കടലിൽ ഉള്ളവർ ഞായറാഴ്ച്ചയോടെ തീരങ്ങളിൽ തിരിച്ചെത്തണമെന്നും നിർദേശം നൽകിയിട്ടുണ്ട് സംസ്ഥാനത്ത് കനത്ത മഴയ്ക്കും കാറ്റിനും സാധ്യതയുള്ളതി നാൽ ജില്ലാ അടിയന്തര ഘട്ട കാര്യനിർവഹണ കേന്ദ്രം ജാഗ്രത പുലർത്തണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നിർദേ ശിച്ചു ഉരുൾപ്പൊട്ടലും മണ്ണിടിച്ചിലുമുണ്ടാകാൻ സാധൃതയുണ്ടെന്ന് ജോഗ്രഫിക്കൽ സർവേ കണ്ടെത്തിയ സ്ഥലങ്ങളിൽ താമസിക്കുന്ന വർക്ക് മറ്റന്നാൾ വൈകീട്ട് മുതൽ സാഹചര്യം അനുസരിച്ച് ക്യാമ്പു കൾ ഒരുക്കാനും നിർദേശിച്ചിട്ടുണ്ട് എറണാകുളം ഇടുക്കി തൃശൂർ മലപ്പുറം പത്തനംതിട്ട കോട്ട യം വയനാട് കോഴിക്കോട് പാലക്കാട് ജില്ലകളിൽ ഉരുൾപ്പൊട്ടൽ സാധൃതയുള്ളതിനാൽ രാത്രി ഏഴു മുതൽ രാവിലെ ഏഴു വരെ മല യോര മേഖലയിലേക്ക് യാത്ര പരമാവധി ഒഴിവാക്കണമെന്നും അതേ ാറിറ്റി അറിയിച്ചു

കനത്ത മഴയിൽ മരം വീണ് മലപ്പുറം നിലമ്പൂരിന് സമീപം മൂത്തേടം പൂളക്കപ്പാറയിൽ മൂന്ന് ആദിവാസികൾ മരിച്ചു

പൂളക്കപ്പാറ ആദിവാസി കോളനിയിലെ ശങ്കരൻ ചാത്തി പാട്ടകരിമ്പ് എസ് ടി കോളനിയിലെ ചാത്തി എന്നിവരാണ് മരിച്ചത് വനാന്തർ ഭാഗത്തെ കോളനിയിൽ ആദിവാസികൾ സംഘടിപ്പിച്ച ഉത്സവത്തിനിടെ ഇന്നലെ വൈകീട്ടാണ് മരം പൊട്ടി വീണത് ആദിവാസികളുടെ ദേവീപൂജാ ഉത്സവത്തിൽ പങ്കെടുക്കുന്നതിനായി നിരവധി കോളനിവാസികൾ എത്തിയിരുന്നു ഇന്നലെ വൈകീട്ട് കോഴിക്കോട് ജില്ലയിലെ മലയോര മേഖല യിൽ വീശിയടിച്ച കാറ്റിലും മഴയിലും മരം വീണ് നിരവധി വീടു കൾക്കും വാഹനങ്ങൾക്കും കേടുപാട് പറ്റി മുക്കം നീലേശ്വരത്ത് ആറ് വീടുകൾക്കും ഓമശേരിയിൽ പത്ത് വീടുകൾക്കും കേടുപാടു കൾ സംഭവിച്ചു കാർഷിക വിളകൾക്കും നാശനഷ്ടമുണ്ടായി ദേശീയപാതയിൽ ആലപ്പുഴ കണിച്ചുകുളങ്ങരയിൽ കെഎസ് ആർടിസി സൂപ്പർഫാസ്റ്റ് ടെംപോ ട്രാവലറിൽ ഇടിച്ച് മൂന്ന് പേർ മരി ച്ചു കണ്ണൂർ ഇരിട്ടി സ്വദേശികളായ വിജയകുമാർ വിനീഷ് പ്രസന്ന എന്നിവരാണ് മരിച്ചത് അർദ്ധരാത്രിയോടെയായിരുന്നു അപകടം മൂന്ന് പേരും ടെംപോ ട്രാവലർ യാത്രക്കാരായിരുന്നു

പ്രധാനമന്ത്രി നരേന്ദ്രമോദി വാരണാസി ലോക്സഭാ മണ്ഡലത്തിൽ ഇന്ന് നാമനിർദേശ പത്രിക സമർപ്പിക്കും പത്രികാ സമർപ്പണത്തിന് മുന്നോടിയായി ഇന്നലെ നഗരത്തിലെത്തിയ പ്രധാനമന്ത്രി റോഡ് ഷോ നടത്തി കഴിഞ്ഞ അഞ്ച് വർഷമായി തന്റെ ഗവൺമെന്റ് ആത്മാർത്ഥ മായ ശ്രമങ്ങളാണ് നടത്തിയതെന്നും അടുത്ത അഞ്ച് വർഷം അതിന്റെ ഫലങ്ങളാണ് അനുഭവിക്കാനിരിക്കുന്നതെന്നും പിന്നീട് റാലിയെ അഭിസംബോധന ചെയ്യവെ മോദി പറഞ്ഞു വാരണാസിയിലെ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ പരാജ യപ്പെട്ടത് മൂടിവെക്കാനാണ് മോദി റോഡ് ഷോ നടത്തിയതെന്ന് കോൺഗ്രസ് ആരോപിച്ചു

സമിതിയിൽ നിന്ന് ജസ്റ്റിസ് എം

രമണ പിൻമാറിയതിനെ തുടർന്നാണിത് ജസ്റ്റിസ് രമണ ചീഫ് ജസ്റ്റിന്റെ അടുത്ത സുഹൃത്താണെന്നും അതുകൊണ്ട് തന്നെ തന്റെ സത്യവാങ്മൂലത്തിനും തെളിവുകൾക്കും വസ്തുനിഷ്ഠ മായ പരിഗണന ലഭിക്കുമോ എന്ന് ആശങ്കയുണ്ടെന്നും പരാതിക്കാരി അറിയിച്ചതിനെ തുടർന്നാണ് രമണ പിൻമാറിയത് ജസ്റ്റിസ് എസ്

ബോബ്ഡെ അധ്യക്ഷനായ സമിതിയിൽ ജസ്റ്റിസ് ഇന്ദിരാ ബാനർജി അംഗമാണ് ആരോപണത്തിന് പിന്നിലെ ഗൂഢാലോചനയും ഒത്തുകളിയും ഉൾപ്പെടെ കാര്യങ്ങൾ അനേഷിക്കുന്നതിന് മുൻ ജ്ഡ്ജി എ

സ്വകാര്യ ട്രാവൽ ബസ്സിൽ യാത്രക്കാരെ മർദ്ദിച്ച സംഭവവുമായി ബന്ധപ്പെട്ട് കല്ലട ട്രാവൽസ് ഉടമ സുരേഷ്ഠിനെ കൊച്ചിയിൽ പൊലീസ് ചോദ്യം ചെയ്തു

അന്വേഷണം തുടരുമെന്നും തൃക്കാക്കര അസിസ്റ്റന്റ് കമ്മീഷണർ സ്റ്റ്യുവർട്ട് കീലർ പറഞ്ഞു സംഭ വവുമായി ബന്ധപ്പെട്ട് റിമാന്റിൽ കഴിയുന്ന ബസ്സ് ജീവനക്കാരെ കസ്റ്റ ഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യുമെന്നും അദ്ദേഹം അറി യിച്ചു

ഓപ്പറേഷൻ നൈറ്റ് റൈഡേഴ്സ് എന്ന പേരിൽ വരും ദിവസങ്ങ ളിലും പരിശോധനയുണ്ടാകുമെന്ന് മോട്ടോർ വാഹന വകുപ്പ് അധി കൃതർ അറിയിച്ചു പത്തനംതിട്ട ജില്ലയിൽ സ്വകാര്യ ബസ്സുകൾ അന്തർ സംസ്ഥാന സർവ്വീസുകൾ നടത്തുന്നതിനെതിരെ മോട്ടോർ വാഹന വകുപ്പിന്റെ നടപടി തുടരുന്നു തിരുവല്ലയിൽ ആറും പത്തനംതിട്ട അടൂർ പന്തളം എന്നിവിടങ്ങളിൽ ഒന്നു വീതവും ബസുകൾക്കെതിരെ നിയമ ലംഘ നത്തിന് പിഴയായി അയ്യായിരം രൂപ വീതം ഈടാക്കി ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൽ കൊൽക്കത്തയിൽ രാജ സ്ഥാൻ റോയൽസ് മൂന്ന് വിക്കറ്റിന് കൊൽക്കത്ത നൈറ്റ് റൈഡേ ഴ്സിനെ തോൽപ്പിച്ചു കൊൽക്കത്തയുടെ തുടർച്ചയായ ആറാം തോൽവിയാണിത് ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്ങ്സ് മുംബൈ ഇന്ത്യൻസിനെ നേരി ടും ബാങ്കോക്കിൽ ഏഷ്യൻ ഗുസ്തി ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യക്ക് രണ്ട് വെങ്കലം

ബീജിങ്ങിൽ ഷൂട്ടിങ്ങ് ലോകകപ്പിൽ ഇന്ത്യയുടെ മനുഭാകർ സൌരഭ് ചൌധരി സഖ്യത്തിന് സ്വർണം

ചൈനീസ് താരങ്ങളെയാണ് ഇവർ തോൽപ്പിച്ചത് ലോകകപ്പിൽ ഇന്ത്യയുടെ രണ്ടാം സ്വർണമാ ണിത് മുട്ടത്ത് സംസ്ഥാന യൂത്ത് ബാസ്ക്കറ്റ് ബോൾ ചാമ്പ്യൻഷിപ്പിൽ ആൺകുട്ടികളിൽ തൃശൂരും കോട്ടയവും സെമിയിൽ കടന്നു പെൺകുട്ടികളുടെ വിഭാഗത്തിൽ തൃശൂരും തിരുവനന്തപുരവുമാണ് സെമിയിലെത്തിയത് മാതൃകാ പെരുമാറ്റച്ചട്ട ലംഘനം ശ്രദ്ധയിൽപ്പെട്ടാൽ റിപ്പോർട്ട് ചെയ്യുന്നതിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏർപ്പെടുത്തിയ സി വിജിൽ മൊബൈൽ ആപ്പ് വഴി ലഭിച്ച പരാതികളുടെ എണ്ണത്തിൽ കേരളത്തിന് റെക്കോർഡ് നേട്ടം

മികച്ച പ്രവർത്തനം കാഴ്ച്ചവെച്ച സംസ്ഥാന മുഖ്യതെരഞ്ഞെടുപ്പ് ഓഫീസറെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അഭിനന്ദിച്ചു

വോട്ടിംഗ് യന്ത്രത്തിൽ വോട്ട് ചെയ്യുന്നതിന് മുൻപ് അഞ്ച് ഘട്ട ത്തിൽ സുരക്ഷാ നടപടികൾ പൂർത്തിയാക്കിയതിന് ശേഷമാണ് ഇവ പ്രവർത്തന സജ്ജമാക്കിയതെന്നും അദ്ദേഹം പറഞ്ഞു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട്ടും വടകരയിലും പൊതുസമൂഹം കയ്യൊഴിഞ്ഞതിന് പിന്നാലെ സിപിഐഎം വോട്ടു കളിൽ ചോർച്ച നടന്നതായി മുസ്ലീം ലീഗ് കോഴിക്കോട് ജില്ലാ പ്രസി ഡന്റ് ഉമ്മർ പാണ്ടികശാല പറഞ്ഞു യുഡിഎഫും ബിജെപിയും വോട്ട് കച്ചവടം നടത്തിയെന്ന സിപിഐഎമ്മിന്റെ ആരോപണം ഇത് മറച്ച് വെക്കുന്നതിന് ന്യായം കണ്ടെത്തലാണെന്നും പരാജയം ഉറ പ്പായതിന്റെ തെളിവാണെന്നും അദ്ദേഹം കോഴിക്കോട്ട് പറഞ്ഞു ഒളിക്യാമറ വിഷയത്തിൽ ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് സിറ്റിംഗ് എംപിയും യുഡിഎഫ് സ്ഥാനാർത്ഥിയുമായ എം

വയനാട് കലക്ട്രേറ്റിന് മുൻപിൽ തൊവരിമലയിലെ ആദിവാസികൾ നടത്തുന്ന് കുത്തിയിരിപ്പ് സമരം ഒത്തുതീർപ്പാക്കുന്നതിന് ജില്ലാകളക്ടർ എ

അജയകുമാർ നടത്തിയ ചർച്ച പരാജയപ്പെട്ടു സമരക്കാർ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ പെട്ടെന്ന് പരിഹരിക്കാൻ കഴിയില്ലെന്ന് കളക്ടർ അറിയിച്ചു ആദിവാസികൾക്ക് ഭൂമി വിതരണം ചെയ്യുക എന്നത് പ്രഖ്യാപിത ലക്ഷ്യമാണെന്നും നടപ്പാക്കുമെന്നും കലക്ടർ പറഞ്ഞു ചർച്ച പരാജയപ്പെട്ടതോടെ ആദിവാസികൾ സമരം തുടരുകയാണ്

നിലമ്പൂർ പോത്തുകല്ലിൽ തേൻ ശേഖരിക്കുന്നതിനിടെ ആദി വാസി യുവാവ് മരത്തിൽ നിന്നും വീണ് മരിച്ചു

കോസ്റ്ഗാർഡിന്റെ മുങ്ങൽ വിദഗ്ധർ ഇന്ന് തെരച്ചിൽ നടത്തും കരുനാഗപ്പള്ളി വവ്വാ ക്കാവ് സ്വദേശികളായ സച്ചിൻ നിധിൻ ബാബു എന്നിവരെയാണ് കാണാതായത് കോഴിക്കോട് തിക്കോടി നന്തി ബസാറിൽ കോടിക്കൽ കടലിൽ കുളിക്കാനിറങ്ങിയ പ്ലസ്ടു വിദ്യാർത്ഥിയെ കാണാതായി വൻമു ഖത്തെ ഇയ്യച്ചേരി മുഹ്സിനെയാണ് കാണാതായത്

കൂടുതൽ ഭീകരാക്രമണത്തിന് സാധ്യതയുള്ളതിനാൽ ഒളിവിൽ കഴിയുന്ന തീവ്രവാദികൾക്ക് വേണ്ടി തിരച്ചിൽ ആരംഭിച്ചതായി പ്രധാ നമന്ത്രി റെനിൽ വിക്രം സിങ്കെ കൊളംബോയിൽ അറിയിച്ചു

ൃ ശ്രീലങ്കയിലെ സ്ഫോടന പരമ്പര അതീവ ദുഖകരവും അപല പനീയവുമാണെന്ന് മുസ്ലീം സംഘടന നേതാക്കൾ കോഴിക്കോട്ട് പറ ഞ്ഞു

ഇത് മൂന്നാം തവണയാണ് കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് സ്വർണക്കടത്ത് കണ്ടെത്തുന്നത് മാഹി മലയാള കലാഗ്രാമം ഏർപ്പെടുത്തിയ പ്രഥമ എം

മുത്തുക്കോയ അർഹനായി

ഡിമെൻഷ്യ ഒരു ആമുഖം എന്ന വിഷയത്തെ ആസ്പദമാക്കി തൊടുപുഴ വെങ്ങലൂരിൽ നാളെ ബോധവത്ക്കരണ സെമിനാർ നട ത്തും നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആന്റ് ഹിയറിംഗ് സാമൂഹ്യ നീതി വകുപ്പ് ഇടുക്കി ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റ് എന്നിവ സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്